ത കുട്ടികളിലെ ആത്മഹത്യയെക്കുറിച്ച് പഠിക്കാൻ സംസ്ഥാനത്ത് പ്രത്യേക സമിതിയ്ക്ക് രൂപം നൽകി വാർത്തകൾ വിശദമായി കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കാത്ത പക്ഷം സംസ്ഥാനം അധികം വൈകാതെ സമൂഹ വ്യാപനത്തിലേക്ക് എത്തിച്ചേരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നറിയിപ്പ് നൽകി സമൂഹത്തിന്റെ മുഴുവൻ രക്ഷയ്ക്കുവേണ്ടിയാണ് ഗവൺമെന്റ് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ഇതിൽ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ കൂടുതൽ സമ്പർക്ക വ്യാപനത്തിലേക്കും സൂപ്പർ സ്പ്രെഡിലേക്കും സമൂഹ വ്യാപനത്തിലേക്കുമെത്താൻ അധികം സമയം വേണ്ടിവരില്ലെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് ഓൺലൈൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി നിഷിത കുമാരി

രുമ കൊല്ലം ജില്ലയിലെ ചവറ പന്മന ശാസ്താംകോട്ട ഗ്രാമ പഞ്ചായത്തുകളിലെ മുഴുവൻ വാർഡുകളേയും പ്രത്യേക നിരീക്ഷണം ആവശ്യമായ കണ്ടയിന്റ്മെന്റ് സോണുകളാക്കി തേവലക്കര ഗ്രാമ പഞ്ചായത്തിലെ അഞ്ച് ഒമ്പത് വാർഡുകൾകളിലും കണ്ടെയിൻമെന്റ് സോൺ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി എറണാകുളം ജില്ലയിൽ ആലുവ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റികളിലെ മൂന്ന് ഡിവിഷനുകളെയും എളങ്കുന്നപ്പുഴ പഞ്ചായത്തിലെ രണ്ട് വാർഡുകളെയും കൊച്ചി കോർപ്പറേഷൻ രണ്ടാം വാർഡിലെ അൽബുറാക് മാർക്കറ്റിനെയും നിയന്ത്രിത മേഖലയാക്കി രുമ കണ്ണൂർ ജില്ലയിൽ കോവിഡ് ചികിത്സയ്ക്ക് സ്വകാര്യ ആശുപത്രികളുടെ സഹകരണം തേടുന്നതിന്റെ ഭാഗമായി ആശുപത്രി ഉടമകൾ ഐ എം എ ഭാരവാഹികൾ നഴ്സുമാരുടെ സംഘടനാ നേതാക്കൾ എന്നിവരുടെ യോഗം ചേരും വൈകിട്ട് കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ ചേരുന്ന യോഗത്തിൽ മന്ത്രിമാരായ ഇ പി ജയരാജൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ പങ്കെടുക്കും രുദ ട്രിപ്പിൾ ലോക്ഡൌണിന് ശേഷവും പൊന്നാനിയിൽ കോവിഡ് സമ്പർക്ക വ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കലക്ടർ കെ ഗോപാലകൃഷ്ണൻ മുന്നറിയിപ്പ് നൽകി

കോഴിക്കോട് നഗര പരിധിയിൽ കോവിഡ് വ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ പുതിയാപ്പ ഹാർബറിൽ പ്രത്യേക നിയന്ത്രണം ഏർപ്പെടുത്തി പുറമെനിന്ന് വരുന്ന മത്സ്യവാഹനങ്ങൾ ഹാർബറിൽ പ്രവേശിപ്പിക്കില്ല

മുഖാവരണവും സാമൂഹിക അകലവും നിർബന്ധമാക്കിയിട്ടുണ്ട്

ദേശ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹ ചടങ്ങുകൾ ഇന്ന് പുനഃരാരംഭിക്കും മുൻകൂർ ബുക്ക് ചെയ്യുന്നവർക്ക് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ചടങ്ങ് നടത്താനാണ് അനുമതി പടിഞ്ഞാറെ നടയിലെ വഴിപാട് കൌണ്ടറിലും ഗൂഗിൾ പ്ലാറ്റ്ഫോം വഴി ഓൺലൈനായും ബുക്കിംഗ് ഇന്നലെ ആരംഭിച്ചു

കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേസന്വേഷണത്തിന് ദേശീയ അന്വേഷണ ഏജൻസിയ്ക്ക് അനുമതി നൽകി ആസൂത്രിത കള്ളക്കടത്ത് ദേശീയ സുരക്ഷയെ ഗുരുതരമായി ബാധിക്കും എന്ന വിലയിരുത്തലിനെത്തുടർന്നാണ് മന്ത്രാലയം വ്യക്തമാക്കി നയതന്ത്ര ബാഗേജിൽ സ്വർണ്ണം കടത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഫലപ്രദമായ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്ത് നൽകിയിരുന്നു രുമ തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ ആരോപണ വിധേയയായ സ്വപ്ന സുരേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിയ്ക്കും ജസ്റ്റിസ് അശോക് മേനോൻ വീഡിയോ കോൺഫറൻസിലൂടെയായിരിക്കും കേസ് പരിഗണിക്കുന്നത്

മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് കലക്ടറേറ്റുകളിലേക്ക് മാർച്ച് നടത്തുമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി

യുവമോർച്ച കോഴിക്കോട് ജില്ലാ കമ്മിറ്റി രാവിലെ നടത്തുന്ന കലക്ടറേറ്റ് മാർച്ച് സംസ്ഥാന പ്രസിഡന്റ് സി

ഗവൺമെന്റിനെ രക്ഷിക്കാൻ നടത്തുന്ന അവസാന അടവാണ് ശബ്ദരേഖയെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ ആരോപിച്ചു

എസ് വഴിയും ഫലം ലഭ്യമാണ്

ദേശീയ സൌരോർജ്ജ കോർപ്പറേഷനും റേവ അൾട്രാ മെഗാ സോളാർ ലിമിറ്റഡും ചേർന്നാണ് പദ്ധതി പൂർത്തീകരിച്ചത്

ദേദ കുട്ടികളിലെ ആത്മഹത്യയെക്കുറിച്ച് പഠിക്കാൻ ഫയർ ആന്റ് റെസ്ക്യൂ മേധാവി ആർ

മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികൾക്കായി ചിരി എന്ന ഫോൺ കൌൺസലിംഗ് പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് സ്റ്റുഡന്റ് പൊലീസ് കേഡറ്റുകൾ മുഖേനയാണ് ഇതിന് അവസരമൊരുക്കുന്നത്

രമേ മൂവാറ്റുപുഴവാലി ജലസേചന പദ്ധതി വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ മൂലമറ്റം പവർഹൌസിൽനിന്ന് ഒഴുക്കുന്ന വെള്ളവും മറ്റ് സ്രോതസ്സുകളിലെ നീരൊഴുക്കും ഇടുക്കി എറണാകുളം ജില്ലകളിലെ കാർഷിക ആവശ്യങ്ങൾക്ക് ലഭ്യമാക്കുന്ന പദ്ധതിയാണിത്

ദരര സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണ പരിപാടിയിൽ പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസിലെ വരെ വിദ്യാർത്ഥികൾക്ക് അരിയും പലവ്യഞ്ജനവുമടങ്ങിയ ഭക്ഷ്യകിറ്റുകളുടെ വിതരണം പൊതു വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ചതായി മന്ത്രി പി തിലോത്തമൻ ആലപ്പുഴയിൽ പറഞ്ഞു

രുദ തെരുവിൽ കഴിയുന്നവർക്കായി കോഴിക്കോട് മാങ്കാവിൽ സജ്ജമാക്കിയ ഉദയം ഹോം ഇന്ന് ഉച്ചയ്ക്ക് മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും

രുമ മത്സ്യ കാർഷിക ദിനാചരണവും സുഭിക്ഷ കേരളം ബയോ ഫ്ലോക് പരിശീലന പരിപാടിയും മന്ത്രി ജെ

രേര അക്ഷയകേന്ദ്രങ്ങൾ വഴി കേന്ദ്ര ഗവൺമെന്റ് സൌജന്യ ധനസഹായം നൽകുന്നുവെന്ന വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ടെന്നും അത് വ്യാജവും അടിസ്ഥാന രഹിതവുമാണെന്ന് സംസ്ഥാന അക്ഷയ ഡയറക്ടർ വാർത്താ കുറിപ്പിൽ അറിയിച്ചു